സിയെ നേരിടും

അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ശബരിമലയിലും പമ്പയിലും പൊലീസ് സുരക്ഷ ശക്തമാണ്

വൈകിട്ട് അഞ്ചിനാണ് നട തുറക്കുന്നത് ഇന്ന് പ്രത്യേക പൂജകൾ ഉണ്ടാവില്ല നാളെ രാത്രി പത്ത് മണിയോടെ നടയടക്കും

റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക ലിസ്റ്റ് തയ്യാറാക്കുന്നത് കടമെടുത്ത് മുങ്ങിയവരുടെ പട്ടിക തയ്യാറാക്കുന്നതിനായ്ട്രി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ താല്പര്യപത്രം ക്ഷണിച്ചു

മൽക്കംകിരി ജില്ലയിലെ കാലിമേലാ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പാപല്ലൂരൂ ഗ്രാമത്തിലെ വനത്തിൽ നിന്നാണ് ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ഇവിടെ ഇന്നലെ രാത്രി സുരക്ഷാ സേനയും നക്സലൈറ്റുകളുമായും ശക്തമായ ഏറ്റുമുട്ടൽ നടന്നിരുന്നു

ഇവിടെ നിന്നും വൻ ആയുന ശേഖരവും കണ്ടെടുത്തിട്ടുണ്ട്

സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനായി വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ മുതിർന്ന നേതാക്കന്മാർ സംസ്ഥാനത്ത് സന്ദർശനം നടത്തുകയാണ്

ഫോട്ടോ പതിപ്പിച്ച വോട്ടർ സ്ലിപ്പ് വീട്ടുപടിക്കൽ എത്തിക്കുന്ന സംവിധാനം മധ്യപ്രദേശിൽ ഇതാദ്യമായാണ് നടപ്പിലാക്കുന്നത്

രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ ദീപാവലി ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു വിശദാംശങ്ങളുമായി ഗോപകുമാർ പുത്തൻ സാധനങ്ങളും ആഭരണങ്ങളും വാങ്ങുന്നതിന് ധൻതെരാസ് ഉത്തമമാണെന്നാണ് ഉത്തരേന്ത്യക്കാരുടെ വിശ്വാസം

ധൻതെരാസിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു സമൂഹത്തിൽ സമാധാനവും ഐശ്വര്യവും പുലരാൻ ദിനം സഹായകമാകട്ടേ എന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു

അയോധ്യയിലെ ഡോ റാം മനോഹർ ലോഹ്യ അവദ് സർവകലാശാലയിലെ വിവേകാനന്ദ ആഡിറ്റോറിയത്തിൽ ലാവോസിൽ നിന്നുള്ള സാംസ്കാരിക സംഘം അവതരിപ്പിച്ച രാംലീലയോടെയാണ് ആഘോഷങ്ങൾക്ക് ആരംഭം കുറിച്ചത് ചെറിയ ദീപാവലി എന്നറിയപ്പെടുന്ന ആഘോഷങ്ങളിൽ സംസ്ഥാന ഗവർണർ മുഖ്യമന്ത്രി തുടങ്ങിയവർ പങ്കെടുത്തു ഇതു കൂടാതെ കൊറിയൻ പ്രസിഡന്റ് മൂൺ ജെ ഇന്നിന്റെ ഭാര്യയും ദക്ഷിണ ദക്ഷിണ കൊറിയൻ പ്രഥമ വനിതയുമായി കിം ജംഗ് സൂക് ഇന്ന് വൈകിട്ട് അയോധ്യയിലെ ആഘോഷ്പ്രിപാടികളിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട്

നിശ്ചിത സ്ഥലത്തും സമയത്തും മാത്രമേ പടക്ക ങ്ങൾ പൊട്ടിക്കാവൂ

ഇന്ന് വൈകുന്നേരത്തോടെ കാലാവസ്ഥ സാധാരണഗതിയിൽ ആകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയ്ടിച്ചു

കാശ്മീരിൽ നിന്ന് ജമ്മുവിലേക്ക് പുറപ്പെട്ട ചരക്കൂവിഹൃനങ്ങൾ അടക്കമുള്ളവ വഴിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് കൂന്ത്ത മഞ്ഞ് വീഴ്ചയെ തുടർന്ന് വൈദ്യുതി തടസപ്പെട്ടു കാശ്മീർ താഴ്വരയിലെ വിവിധ പ്രദേശങ്ങളിൽ വൈദ്യുതി പുനസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുകയാണ് തെക്ക് മധ്യ വടക്കൻ പ്രദേശങ്ങളിലെ ഫലവർഗ്ഗ കൃഷിയേയും കനത്ത മഞ്ഞ് വീഴ്ച സാരമായി ബാധിച്ചിട്ടുണ്ട്

വനിതാ പോലീസ് കോൺസ്റ്റബിളിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സീനിയർ ഉദ്യോഗസ്ഥരെ ആക്രമീച്ച പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പിരിച്ചുവിട്ടതെന്ന് പാട്ന സോണൽ ഐ

അറിയിച്ചു

എസ് അന്തർദേശീയ വ്യാപാര കമ്മീഷൻ നോൺസ്റ്റിക് പാത്രങ്ങളിലടക്കം പ്രധാന ആവരണമായി ഉപയോഗിക്കുന്ന വസ്തുവാണ് ഫ്ളൂറോ പോളിമർ കഴിഞ്ഞ ആഴ്ച പുറപ്പെടുവിച്ച ഉത്തരവിലാണ് കമ്മീഷൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇത്തരം വസ്തുക്കൾക്കുമേൽ ഈ ഏർപ്പെടുത്തിയിരുന്ന നികുതി എടുത്തുകളഞ്ഞത്

റെനിൽ വിക്രമസിംഗയെ പുറത്താക്കി മഹീന്ദ രാജപക്സെ പുതിയ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു പിന്നാലെ രാജ്യത്ത് രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ തുടരുകയാണ്

അഞ്ചാം സീസണിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ്

തുടർച്ചയായ നാല് സമനിലക്കുശേഷം വിജയർ ലക്ഷ്യമിട്ടിറങ്ങുന്ന ബ്ലാസ്റ്റേഴ്സിന് ശക്തരായ ബംഗളൂരു കടൂത്ത വെല്ലുവിളി ഉയർത്തും

തുടർച്ചയായ രണ്ടാം കിരീട നേട്ടത്തിലേയ്ക്ക് നീങ്ങുകയാണ് ഹരിയാന ട്രാക്കിലും ഫീൽഡിലും അപ്രതീക്ഷിത തിരിച്ചടിനേടിയ കേരളത്തിന് കിരീട സ്വപ്നം മങ്ങി